നാഴികകല്ല് പിന്നിട്ട് ഇന്ത്യ രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു

വാക്സിൻ മുൻഗണനാ ക്രിമത്തിൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി

രൂപ കർഷകരുടെ അക്കൌണ്ടുകളിൽ എത്തിച്ചതായി കേന്ദ്രം

പി ശർമ്മാ ഒലി വിശ്വാസവോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു

ഇത് റെക്കോർഡ് യാത്രയാണ്

ഗുരുതരമായി ്രൊഗം ബാധിച്ചവർ വീടുകളിലെത്തുന്ന വാർഡ് തല സന്നദ്ധ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ സന്നദ്ധ ഭടന്മാർ തുടങ്ങിയ മുൻഗണനാ വിഭാഗത്തിനാണ് ആദ്യം വാക്സിൻ നൽകുന്നത് സർക്കാർ വാങ്ങാൻ തീരുമാനിച്ച ഒരു കോടി കോവിഷീൽഡ് വാക്സിനിൽ മൂന്നര ലക്ഷം ഡോസ് വാക്സിൻ ഇന്നലെ കേരളത്തിലെത്തി പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കേരളം വാക്സിൻ വാങ്ങിയത്

കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്രവുമായി സഹകരിക്കുന്ന രീതികൾ കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്

തെല്ലൂങ്കാന ആന്ധ്രാ പ്രദേശ് തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലേക്ക് ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിനുകൾ ഓട്ടിക്ക്ണ്മെന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ദേവിപ്രിയ രണ്ട് കോടിയിലേറെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജനയിലൂടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ സെക്രട്ടറി സുധാംശു പാണ്ഡെ പറഞ്ഞു

ഭക്ഷ്യൂ എണ്ണയുടെ വില നിലവാരം കേന്ദ്രം നിരന്തരം നിരീക്ഷിച്ച് വർുന്നതായും ഭക്ഷ്യസെക്രട്ടറി അറിയിച്ചു

കടുത്ത പ്രമേഹം ഉള്ളവർക്കും ദീർഘകാലം ഐ

യു കളിൽ കഴിയുന്നവർക്കുമാണ് സാധാരണയായി മ്യൂകോർമൈകോസിസ് എന്ന ഫംഗസ് ബാധ കണ്ടുവരുന്നത്

ജനിതകമാറ്റം വന്ന വൈറസിനെതിരെ വാക്സിൻ എത്രത്തോളം ഫലപ്രദമാകുമെന്നും സംശയങ്ങൾ നിലനിൽക്കുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ജനിതക മാറ്റം വന്ന വൈറസ് ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത്

കേന്ദ്ര യാതൊരടിസ്ഥാനവുമില്ലാത്ത ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്ന് വാർത്താ വിതരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി

ശ്രീ വെങ്കടേശ്വര രാംനരൈൻ സർക്കാർ ജനറൽ ആശുപത്രിയിലാണ് ദുരന്തം സംഭവത്തിൽ ആന്ധ്ര മുഖ്യമന്ത്രി വൈ

നാല് ലക്ഷം ലിറ്റർ ഓക്സിജൻ ഉല്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഡൽഹിയിലെ ഡി

ഡി

മനു അങ്കിശ്ര്യാണ് ചിത്രം അദ്ദേഹത്തിന് മികച്ച കുട്ടികളുടെ ചിത്രത്തിന്റെ സംവിധായകൻ എന്ന ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കി

മലയാള സിനിമയിലെ സുവർണ്ണ കാലഘട്ടത്തിനാണ് തിരശ്ശീല വീഴുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു സംസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് കോട്ടയത്ത് പേരൂർ ചെറുവാണ്ടൂർ സെന്റ്

പ്രധാനമന്ത്രി കെ